മേഖലയിലെ ചില നേതാക്കൾ ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ സമാധാനത്തിന് ഗുണകരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസി ഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചു

ഭീകരപ്രവർത്തനങ്ങളും അക്രമങ്ങളും ഇല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമ ന്ത്രി എടുത്തുപറഞ്ഞു അതിർത്തി കടന്നു നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾ അവ സാനിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദാരിദ്യം നിരക്ഷരത രോഗം എന്നി വക്കെതിരെ പോരാടുന്ന ആരുമായും ഇന്ത്യ സഹകരിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു പ്രധാനമന്ത്രിയുമായി ടെലഫോണിൽ സംസാരിച്ചഉടൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വിളിച്ച ഡൊണാൾഡ് ട്രംപ് സംഘർഷം ഇല്ലാതാക്ക ണമെന്നും ജമ്മു കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുമായി തർക്കത്തിലേർപ്പെടരു തെന്നും ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടുദിവസത്തെ സന്ദർശനത്തിനായി മറ്റ ന്നാൾ ഫ്രാൻസിലേക്ക് പോകും പ്രതിരോധം ആണവോർജ്ജം തുടങ്ങിയ മേഖല കളിലും ഭീകരവാദത്തെ ചെറുക്കുന്നതിലും സഹകരണം ശക്തിപ്പെടുത്തുന്നത് ഫ്രഞ്ച് പ്രസിഡന്റുമായി മോദി ചർച്ച ചെയ്യും ഫ്രാൻസിൽ നിന്നായിരിക്കും യു എ ഇ ബഹ്റിൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് പ്രധാനമന്ത്രി യാത്ര തിരിക്കുക

ചാന്ദ്രദൌത്യത്തിലെ ഏറ്റവും നിർണായക ചുവടുക ളിൽ ഒന്നാണിത്

തുടർന്ന് പ്ടേകം ചന്ദ്രനെ ഭ്രമണം ചെയ്തു തുടങ്ങും നാളെ വീണ്ടും എഞ്ചിൻ ജൂലിപ്പിച്ച് ഭ്രമണപഥം ശരി യാക്കും

പിന്നീട് പേടകത്തിൽ നിന്ന് പുറത്തുവരുന്ന ലാൻഡർ ചന്ദ്രോ പരിതലത്തിലിറങ്ങും പ്രശസ്ത ബോളിവുഡ് സംഗീത സംവിധായകൻ ഖയാം അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലെ സ്ഥകാര്യ ആശു പത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഗീതാസ്വാദകർ ഖയാം എന്നുവിളിക്കുന്ന മുഹമ്മദ് സഹൂർ ഖയാം ഹാശ്മിയുടെ അന്ത്യം

കഭി കഭി മേരെ ദിൽ മേം എന്ന കാലാതിവർത്തിയായ ഗാനത്തിലൂടെ ഇന്ത്യൻ ചലച്ചിത്രലോകത്തെ വിസ്മയിപ്പിച്ച സംഗീത സംവിധായകനായിരുന്നു ഖയാം അദ്ദേഹം ഈണമിട്ട ഉമ്രാവോ ജാൻ ത്രിശൂൽ ഷോലാ ഓർ ഷബ്നം നൂറി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങളും ഏറെ പ്രശസ്തമാണ് ഉമ്രാവോ ജാനിലെ സംഗീതത്തിന് ദേശീയ പുരസ്കാരവും ഫിലിം ഫെയർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖയാമിന്റെ നിര്യാണത്തിൽ അനുശോചി ച്ചു ഖയാം സാഹേബ് ഈണമിട്ട ഗാനങ്ങൾക്ക് രാജ്യമെന്നും അദ്ദേഹത്തോട് കട പ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം ടിറ്ററിൽ പറഞ്ഞു ആ ഈണങ്ങൾ എന്നും ഓർമ്മി ക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ പുതുക്കി രാജ്യമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ അറിയിച്ചു വിവര സാങ്കേതിക രംഗത്തും ടെലികോം മേഖലയിലും രാജീവ് ഗാന്ധി കൊണ്ടുവന്ന വിപ്ലവം എക്കാലത്തും സ്മരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു

വയനാട് പുത്തുമലയിൽ റഡാർ ഉപയോഗിച്ച് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് ഇവിടെ ഇന്നലെ ഒരു മൃതദേഹം കണ്ടെടുത്തിരുന്നു

സംസ്ഥാനത്ത് ഇന്നും നാളെയും ചിലയിടങ്ങളിൽ ശക്തമായ മഴക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും കണ്ണൂരിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

കാലവർഷക്കെടുതിയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട വരെ പുനരധിവസിപ്പിക്കുന്നതിന് വാസയോഗ്യമായ ഭൂമി കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കൽപ്പറ്റ കളക്ട്രേറ്റിൽ തദ്ദേശ സ്വയംഭരണ അധ്യക്ഷൻമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഉടമസ്ഥരാക്കി ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി ജെ മെഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു മത്സ്യ ത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്ക് തിരുവന ന്തപുരത്ത് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണം ചെയ്യുകയാ യിരുന്നു മന്ത്രി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അനർഹരുണ്ടെന്നും ആനുകൂല്യങ്ങൾക്കർഹരായ യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളെ സർവെയിലൂടെ കണ്ടെത്തി മണ്ണെണ്ണ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയി ച്ചു ഈ വർഷം മുതൽ യാനം അടിസ്ഥാനമാക്കി മാത്രമേ മണ്ണെണ്ണ നൽകുകയു ള്ളൂവെന്നും മന്ത്രി പറഞ്ഞു

രാജ്ഭവനിൽ രാവിലെ പത്തരക്ക് ഗവർണർ വാജുഭായ് വാല പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും പതിമൂന്നോ പതിനാലോ അംഗങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് സൂചന

നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുത്തു ബി ജെ പി അംഗമായി രുന്ന മദൻ ലാൽ സെയ്തിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല

മലയാളി താരം എച്ച് എസ് പ്രണോയി ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങളായ സായ് പ്രണീതും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു വനിതാ ഡബിൾസിൽ മേഘ്ന പൂർവിഷ എസ് റാം ജോഡിയും രണ്ടാം റൌണ്ടിലെത്തി വനിതകളിൽ പി

സിന്ധുവും സൈന നെഹ്വാളും ഇന്നിറങ്ങും ഭിന്നശേഷിക്കാരനായ മലയാളി ക്രിക്കറ്റ് താരം ഇടുക്കി പാറേമാവ് സ്വദേശി അനീഷ് പി

സ്പോർട്സ് കൌൺസിലിനു വേണ്ടി കലക്ടർ എച്ച് ദിനേശൻ അനീഷിന് ഉപഹാരം നൽകി

കൊച്ചി നഗരത്തിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി കൾ ഈ മാസം തന്നെ പൂർത്തിയാക്കണമെന്ന് മന്ത്രി കെ

റോഡുകളിലെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിന് സമയക്ര മവും തിരുവനന്തപുരത്ത് ചേർന്ന ജല അതോറിറ്റിയുടെ അവലോകന യോഗത്തിൽ തയ്യാറാക്കി പൈപ്പ് ലൈൻ സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട് റോഡുകൾ തകർന്നതി നെകുറിച്ച് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രി അവലോകന യോഗം വിളിച്ചു ചേർത്തത്

ആർച്ച് ബിഷപ്പ് മാർ ജോർജ്ജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു സഭയിലെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ ഈ സിനഡിൽ തന്നെ നടപടിയുണ്ടാകണ മെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു

് കണ്ണൂർ കോർപറേഷൻ ഡെപ്യൂട്ടി മേയർ പി

മേയർ ഇ

എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമോയം പാസായതിനെ തുർന്ന് മേയർ രാജിവെച്ചിരുന്നു

ഡി എഫിന്റെ പുതിയ മേയറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും അതിനിടെ ഡെപ്യൂട്ടി മേയർ പി

രാഗേഷിനെതിരെ എൽ

എഫ് അവിശ്വാസത്തിനുള്ള നോട്ടീസ് നൽകി

സ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു

തൃശൂർ ജില്ലയിൽ ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ ഭൂരിഭാഗവും പിരിച്ചുവിട്ടു

സ്ഥാപിച്ച് താത്കാലികമായി ഗതാഗതയോഗ്യമാക്കുന്നതിനും തുഷാരഗിരി ചിപ്പിലി ത്തോട് റോഡ് താത്കാലികമായി ഗതാഗത യോഗ്യമാ ക്കുന്നതിനും സത്വര നടപടികൾ സ്വീകരിക്കാൻ തിരുവമ്പാടിയിൽ ചേർന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങ ളിലെ അധ്യക്ഷന്മാരുടെ യോഗം നിർദേശം നൽകി മറ്റു നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വിശദമായ പദ്ധതികൾ തയ്യാറാക്കി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു

ത്തിലും കയർ മേഖലയ്ക്ക് വൻ നാശ നഷ്ടം

കെ രാഘവൻ എം പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര വ്യോമയാന മന്ത്രിക്കും കത്തയച്ചു

സ്വരാജ്യത്തേക്കാൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിനാണ് ഊന്നൽ നൽകുക എന്ന് പറഞ്ഞ കാലത്തിന് മുമ്പേ ചിന്തിച്ച മഹാനുഭാവനായിരുന്നു മൌലാനാ അബുൾ കലാം ആസാദ് എന്ന് പ്രശസ്ത ഫെമിനിസ്റ്റും എഴുത്തുകാരിയുമായ ഡോക്ടർ സെയ്ദ സെയ്ദാൻ ഹമീദ് പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലാ മൌലാനാ അബുൾ കലാം ആസാദ് ചെയറും ചരിത്ര പഠനവകുപ്പും സംയുക്തമായി സംഘ ടിപ്പിച്ച ആസാദ് ഇസ്ലാമും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ

കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണവുമായി പിടിയിലായവരിൽ നിന്നും ലഭിച്ച സൂചനയനുസരിച്ച് കോഴിക്കോട് നഗരത്തിലെ ഫ്ളാറ്റും ബാലുശേരിയിലെ ജല്ലറിയും വീടും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെടു ത്തത്

അസോസിയേഷനുകൾ എന്നിവയെ ഉൾപ്പെടുത്തി ഊർജിത ടീമുകൾ രൂപീകരിച്ച് ലഹരിക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ജില്ലാ കലക്ടർ സാംബശിവറാവു പറഞ്ഞു